വൻസുരക്ഷാ സന്നാഹത്തിൽ ശബരിമല തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിട്ടു തുടങ്ങി ശബരിമലയിൽ യുവതീപ്രവേശനം തടയാൻ സഹനസ മരം തുടരുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിളള ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിന്റെ ബഹുജന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് കണ്ണൂ രിൽ ഉദ്ഘാടനം ചെയ്യും പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ഭരണസമിതിക്കെ തിരെ കൊണ്ടുവന്ന അവിശ്ചാസ പ്രമേയം പരാജയപ്പെട്ടു മന്ത്രി ഡോ കെ ടി ജലീൽ രാജി വെക്കണമെന്നാവശ്യ പ്പെട്ട് കോഴിക്കോട്ട് യൂത്ത് ലീഗ് മാർച്ച് കേരള ഹൈക്കോടതിയിൽ നാല് ജഡ്ജിമാർ ചുമതല

നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വരെ പൊലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ലലലലലലലലലലലല ശബരിമല തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്ന് അല്പം മുമ്പ് പമ്പയിലേക്ക് കടത്തിവിട്ടു എരുമേലി യിൽ നിന്ന് നിലയ്ക്കലേക്ക് വാഹനങ്ങളും പുറ പ്പെട്ടു

ലലലലലലലലലലലല ശബരിമല സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസുകൾ പൂട്ടി താക്കോൽ ഏൽപ്പിക്കാൻ പൊലീസ് നിർദ്ദേശം നൽകി ദേവസം വനം ജലം വൈദ്യുതി വകുപ്പുകൾക്കാണ് സന്നിധാനത്ത് ഗസ്റ്റ് ഹൌസുകൾ ഉള്ളത് ലലലലലലലലലലലല ശബരിമലയിൽ പൊലീസ് സംരക്ഷണത്തോടെ ദർശനത്തിനെത്താൻ സ്ത്രീകളാരും സമീപിച്ചിട്ടില്ലെന്ന് പൊലീസ് അധികൃതർ അറിയിച്ചു പത്തനംതിട്ട ജില്ലാ പൊലീസ് മേധാവി ടി നാരായണനാണ് ഇക്കാര്യം അറി യിച്ചത് ലലലലലലലലലലലലല അതിനിടെ രാവിലെ എരുമേലിയിൽ നിന്ന് തീർത്ഥാ ടകരെ നിലയ്ക്കലേക്കും പമ്പയിലേക്കും അയക്കാത്ത തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ബി ജെ പി പ്രവർത്തകർ കെ എസ് ആർ ടി സി സ്റ്റാന്റു കൾക്കു മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി ശബ്രിമ്ലയിൽ യുവതീപ്രവേശം തടയാൻ സഹനസമരം തുടങ്ങുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിളള പറഞ്ഞു തടഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് ഭക്തർക്കറിയാം ഇക്കാരൃത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ മൌനം കുറ്റകരമാണെന്നും ശ്രീധരൻപിളള പത്തനംതിട്ടയിൽ അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ യുവതികൾ ദർശനത്തിനെത്തി യപ്പോൾ നടയടക്കാനെടുത്ത തീരുമാനം ബി ജെ പിയുമായി കൂടിയാലോചിച്ച ശേഷമായിരുന്നുവെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിളള വെളിപ്പെടുത്തി കോഴിക്കോട്ട് നടന്ന യുവമോർച്ച സമ്മേ ളനത്തിന്റെ ശബ്ദരേഖയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടയടച്ചാൽ കോടതിയലക്ഷ്യമാകില്ലേ എന്ന് തന്ത്രി ചോദിച്ചിരുന്നതായും ശബ്ദരേഖയിലുണ്ട് തന്ത്രി ഒറ്റയ്ക്കാവില്ലെന്നും പതിനായിരങ്ങൾ കൂടെയുണ്ടാകു മെന്നും ഉറപ്പു നൽകിയതായി ശ്രീധരൻപിള്ള പറയുന്നു

ശബരിമല സുരക്ഷാ ചുമതല വഹിക്കുന്ന ഐ ജി എം

അജ്യ കു മാർ മേൽശാ ന്തി മാ രു മായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്

സന്നിധാ നത്തെ പൊലീസ് നടപടിയെക്കുറിച്ച് അനേഷണം ആവശ്യ പ്പെടുന്ന ഹർജിയും സന്നി ധാ നത്ത് അറസ്റ്റിലായ അഭിഭാഷകന്റെ ജാമൃഹർജിയുമാണ് കോടതിയുടെ പരിഗണനയ്ക്കു വരുന്നത്

റാലിയെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ വൈകിട്ട് ഗതാ ഗത നിയന്ത്രണം ഏർപ്പെടുത്തി

കോൺഗ്രസിലെ ഒരംഗം രാജി വെച്ചതിനെ തുടർന്ന് അവിശ്വാസ പ്രമേയം പാസ്സാക്കാനാവശ്യമായ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാ യിരുന്നു

കോൺഗ്രസും ബി ജെ പിയും ഒത്തുകളിച്ച് അവി ശ്വാസം അട്ടിമറിച്ചെന്ന് സി പി ഐ എം ആരോപിച്ചു ലലലലലലലലലലലലല ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപറേഷൻ മാനേജർ സ്ഥാനത്ത് ബന്ധുവിനെ നിയോഗിച്ച മന്ത്രി കെ ടി ജലീൽ രാജി വെക്കുകയോ അല്ലെങ്കിൽ അദ്ദേ ഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലീം യൂത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോട്ട് ന്യൂനപക്ഷ ധനകാര്യ കോർപറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഓഫീസിന് സമീപം മാർച്ച് പൊലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടാ യത് പൊലീസ് ജലപീരങ്കി പ്രയോഗിച്ചു

അഭിഭാഷകരായ വി ജി അരുൺ എൻ നഗരേഷ് ജില്ലാ ജഡ്ജിമാരായ ടി വി അനിൽകുമാർ എൻ അനിൽകുമാർ എന്നിവരാണ് ഹൈക്കോടതി ജഡ് ജിമാരായി ചുമതലയേറ്റത് കൊളീജിയം ശുപാർശയെ തുടർന്ന് ഇവരെ ഹൈക്കോടതി ജഡ്ജി മാരായി നിയമിച്ച് കേന്ദ്രം കഴിഞ്ഞ ദിവസം വിജ്ഞാ പനം പുറപ്പെടുവിച്ചിരുന്നു

ഇക്കാര്യത്തിൽ യാതൊരു വിട്ടു വീഴ്ചയ്ക്കും തയ്യാറി ല്ലെന്നും ന്യൂഡൽഹിയിൽ ചേർന്ന സമിതിയുട്ടെ രണ്ടു ദിവ സത്തെ സമ്മേളനം വ്യക്തമാക്കി

കോടതിക്ക് തീരുമാ നമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചർച്ചയിലൂടെ അഭി പ്രായൈക്യമുണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ലോകത്ത് ഏറ്റവും അധികം സഹി ഷ്ണുത പാലിക്കുന്നത് ഹിന്ദുക്കളാണെന്നും അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഒരു ഹിന്ദുമത ഗ്രന്ഥവും അക്രമം പ്രോത്സാഹിപ്പിക്കു ന്നില്ലെന്നും അക്രമത്തിന്റെ മറവിൽ ഇത്തരം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഹിന്ദുക്കൾ ആഗ്രഹിക്കുകയി ല്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഇതുസംബന്ധിച്ച നല്ല വാർത്ത രാജ്യത്തെ ഭക്തർക്ക് വൈകാതെ ലഭിക്കുമെന്ന് അദ്ദേഹം ഹരിദാ റിൽ പറഞ്ഞു ലലലലലലലലലലലലല ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബെങ്കളൂരു എഫ് സിയെ നേരി ടും

നാല് സമനിലകളുമായി ഏഴ് പോയന്റാണ് ബ്ലാസ്റ്റേ ഴ്സിനുള്ളത്

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഡൽഹി ഡൈനാ മോസ് ജംഷഡ്പൂർ മത്സരം ഇരുഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

കൊൽക്കത്തയിൽ ഇന്നലെ നടന്ന ആദ്യമത്സരത്തിൽ ഇന്ത്യ അഞ്ചു വിക്ക റ്റിനാണ് വിൻഡീസിനെ തോല്പിച്ചത്

സ്കൂൾതലം മുതൽ തന്നെ കായികവിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനം നിർവഹി ക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാർ ബോധവത്കരണ ക്ലാസ് പ്രദർശനം എന്നിവ ഒരുക്കുന്നുണ്ട്

പൊലീസിലെ അന്വേഷണ പ്രൊസി ക്യൂഷൻ വിഭാഗങ്ങൾ വേർതിരിക്കുന്നതുൾപ്പെടെ കാര്യങ്ങ ളാണ് പരിഗണനയിലെന്ന് ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയതായും അദ്ദേഹം പറഞ്ഞു പ്രൊസിക്യൂഷൻ ഡയറക്ടറായി സംസ്ഥാനങ്ങളിൽ ഡി ജി പി റാങ്കിലെ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന കാര്യവും പരിശോധിച്ചുവരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു ഇലക്ട്രോണിക് തെളിവുകൾ പ്രാഥമിക തെളിവുകളായി അംഗീകരിക്കുന്നതിന് ക്രിമിനൽ നടപടി ക്രമങ്ങളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യും

ലലലലലലലലലലലല വില്ലുവണ്ടി ശതോത്തര ജൂബിലി സ്മൃതിപഥം ഇന്ന് കൊല്ലം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും പട്ടികജാതി സമൂഹത്തിന് പൊതുവഴിയിലൂടെ യാത്രചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനായി അയ്യങ്കാളി വില്ലുവണ്ടി പായിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് സ്മൃതിപഥം സംഘടിപ്പിക്കുന്നത്

കഞ്ചാവ് കഞ്ചാവ്ചെടികൾ ഹാഷിഷ് ഓയിൽ ചാരായം വാഷ് ലഹരി ഗുളികകൾ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു

ക്ഷീരവികസന വകുപ്പ് കർഷകർക്കും കുടുംബാംഗങ്ങൾക്കുമായി ക്ഷീര സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നു

പ്രധാന ചടങ്ങായ ജാതവൻ പുറപ്പാ ടോടെ ആരംഭിക്കുന്ന ഉത്സവം ബുധനാഴ്ച കുടികൂ ട്ടൽ ചടങ്ങിന് ശേഷം ജാതവൻ മണ്ണൂരിലെ കോട്ടയി ലേക്ക് തിരിച്ച് എഴുന്നളളുന്നതോടെ സമാപിക്കും